ഷാജിക്ക് നിയമസഭാ ന്ട്പ്പടികളിൽ പങ്കെടുക്കാമെന്ന് സുപ്രീം കോടതി ട് അന്തരിച്ച വയനാട് എപ്പി

ഐ ഷാനവാസിന് പൂർണ്ണ ഔദ്യോഗിക്ട് ബഹുമതികളോടെ വിട പോകുന്നവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി

ഹൈക്കോടതി നിർദ്ദേശം കണക്കിലെടുത്താണ് നടപടി ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി വരെ തുടരും വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ബിജി വർഗ്ഗീസ്

പത്തനംതിട്ട പൊലീസാണ് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തത്

ആഗോള വിപണിയിൽ എണ്ണ വിലയിലുണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണം

ഷാജി തെരഞ്ഞെടുപ്പ് കേസിൽ നിയമസഭാ അംഗത്വം റദ്ദാക്കപ്പെട്ട അഴീക്കോട് എം

ഷാജിക്ക് നിയമസഭാട് നടപടികളിൽ പങ്കെടുക്കാമെന്ന് സുപ്രീംകോടതി എന്നാൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ കഴിയില്ല സഭാംഗത്വം റദ്ദാക്കിയതിനെതിരെ നല്കിയ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന കെ

ഷാജിയുടെ ആവശ്യം കോടതി നിരാകരിച്ചു

എ ആയി തുടരാനാകില്ലെന്ന് കോടതി വിശദമാക്കി വാക്കാലുള്ള നിരീക്ഷണമാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നടത്തിയത്

എൽ എ യെ അയോഗ്യനാക്കിയ ഉത്തരവിന് ഹൈക്കോടതി അനുവദിച്ച സ്റ്റേ നാളെ തീരും എതിർ സ്ഥാനാർത്ഥിയായി മൽസരിച്ച എം വി നികേഷ് കുമാറിന്റെ പരാതിയിലാണ് ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത് തെരഞ്ഞെടുപ്പിൽ വർഗ്ഗീയ പ്രചാരണം നടത്തിയെന്നായിരുന്നു ഷാജിക്കെതിരായ പരാതി

പി യും കെ

സി വർക്കിങ് പ്രസിഡന്റുമായിരുന്ന എം

പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കലൂർ തോട്ടത്തുംപടി ജുമാ ് മസ്ജിദിലാണ് സംസ്ക്കാര ചടങ്ങുകൾ നടന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി പിവിധ രാഷ്ട്രീയ സാംസ്ക്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു

പി എം

ഷാന്റ്വാസിന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഇ

ഷാനവാസിന്റെ വീട്ടിലെത്തി ്ജ്ന്ന്ലെ രാത്രിയാണ് ഇരുവരും അന്തിമോപചാരം അർപ്പിച്ചത്

ഇ മൈഗ്രേറ്റ് പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്

സന്ദർശക വിസ കുടുംബ വിസ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് ബാധകമാകില്ല രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ചാൽ എസ് എം എസ് വഴിയും ഇ മെയിൽ വഴിയും സന്ദേശങ്ങൾ ലഭിക്കും

ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

പനിയുടെ ലക്ഷണങ്ങൾ കാൽ ഉടിൻ തന്നെ രോഗിയെ അടുത്തുള്ള പ്രാഥമിക കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആർ

ആദ്യഗഡുവായാണ് തുക നൽകുന്നത്

ട്ടടടടടടടടട ഉദ്ഘാടനം എറണാകുളം പറവൂരിൽ നന്ത്യാട്ടുകുന്നത്ത് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്ന് നിർവ്വഹിക്കും

ദുരന്ത അപകടഘട്ടങ്ങളിലെ പ്രവർത്തനം പ്രഥമ ശുശ്രൂഷ നൽകൽ തുടങ്ങിയവയിലാണ് പരിശീലനം മോക് ഡ്രില്ലിലൂടെ പ്രായോഗിക പരിചയം നേടാനും അവസരമുണ്ടാകും

മത്സരങ്ങൾ ര് ദിവസമായി വെട്ടിക്കുറച്ചത് മത്സരാർത്ഥികളിൽ ബുദ്ധിമുട്ടുാക്കി ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മത്സരങ്ങൾ പലതും അവസാനിച്ചത്

പുന്നപ്ര എൻജിനീയറിംഗ് കോളേജിൽ നടത്തുന്ന മേളയിൽ അമ്പതോളം കമ്പനികൾ പങ്കെടുക്കും

ബിജെപിയാണ് ഹർത്താലിന് ആഹ്വാന്ം ചെയ്തത്

എസ് അച്യുതാനന്ദൻ നാടിന് സമർപ്പിച്ചു

മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒന്നേകാൽ കോടി രൂപ് ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്

കമ്മീഷൻ അദ്ധ്യക്ഷ എം

ആലപ്പുഴ ജില്ലയിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വത്തുതർക്കം വർദ്ധിക്കുന്നതായി എം

ഇത്തരം തർക്കങ്ങളിൽ വയോജനങ്ങളാണ് ഇരയാകുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു

ഇന്ന് രാവിലെ എറണാകുളം എളമക്കരയിലെ വീട്ടിലാണ് രജിസ്ട്രാറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം ആത്മഹത്യയാണെന്നും മരണത്തിൽ ദുരൂഹതയില്ലെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം

സി

അഞ്ച് തവണ ലോക ചാമ്പ്യനായ മേരി കോം വനിതാ ലോക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അപൂർവ്വ നേട്ടം സ്വന്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്